സ്റ്റേറ്റ് സെക്രട്ടറി ക്ലാമക്ക് പോംപിയോ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിൽ എത്തും

മത്സരം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുതൽ ലോർഡ്സിൽ

പ്രധാൻമന്ത്രി ആവാസ് യോജന സ്മാർട്ട് സിറ്റി അമൃത് പദ്ധതി എന്നിവ ഇതിന്റെ ഭാഗമാണ് നഗരവികസനം എന്ന ലക്ഷ്യത്തിനതീതമായി കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തിന് വലിയ പരിവർത്തനമാണ് പദ്ധതി കൊണ്ടുവരുന്നതെന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു ഈ അതിവേഗ പദ്ധതികളിൽ വൻ നിക്ഷേപമാണ് ആകർഷിക്കപ്പെട്ടിട്ടുള്ളത് നഗര അടിസ്ഥാന സൌകര്യം ഇനിയും വർദ്ധിക്കുമെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു

രാജ്യത്ത് പുതിയ ഗവൺമെന്റ് അധികാരമേറ്റ ശേഷമുള്ള ആദൃ ഉന്നതതല സന്ദർശനമാണിത് വിദേശകാര്യമന്ത്രി ഡോ

ആഗോള മേഖലാ സംഭവ വികാസങ്ങളും ചർച്ചയാകും

ഇതിനായി വിപുലമായ പദ്ധതി തയ്യാറാക്കിയതായി കേന്ദ്രമന്ത്രി ധർമേന്ദ്ര പ്രധാൻ അറിയിച്ചു

ദേശീയ വിവര ശേഖര കേന്ദ്രം എൻ ഐ സി വികസിപ്പിച്ച സാരഥി ആപ്തിക്കേഷനിൽ ഇന്തൃയിലെ മുഴുവൻ ഡ്രൈവിംഗ് ലൈസൻസുകളുടെയും വിവരങ്ങൾ ലഭ്യമാകും

ഇത്തരത്തിൽ കേന്ദ്രീകൃത സംവിധാനം നിലവിൽ വരുമ്പോൾ ഈ മേഖലയിലെ പല തട്ടിപ്പുകളും തടയാനാകുമെന്നും ശ്രീ ഗഡ്കരി അഭിപ്രായപ്പെട്ടു

ദ്രബിജെപി സ്ഥാനാർത്ഥിയായി വിദേശകാരൃമന്ത്രി എസ് ജയ്ശ്ക്കർ ഇന്ന് നാമനിർദ്ദേക പത്രിക സമർപ്പിക്കും

കേന്ദ്രമൃന്ത്രിമാരായ അമിത്ഷാ സ്മൃതി ഇറാനി എന്നിവർ ലോക്സഭാ അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വന്ന ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് അടുത്ത മാസം അഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് വിദേശകാര്യ സെക്രട്ടറിയായിരുന്ന ഇന്നലെയാണ് ഔദ്യോഗികമായി ബിജെപിയിൽ അംഗത്വമെടുത്തത്

നിർഭയമായും ധീരതയോടെയും അടിയന്തരാവസ്ഥക്കാലത്തെ നേരിട്ടവരെ രാജൃം അഭിവാദൃം ചെയ്യുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു

ഇന്ത്യാചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളിൽ ഒന്നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തുടർന്നുള്ള സംഭവങ്ങളുമെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഭരണഘടനയൂട്ട്ടിയുര് മറ്റ് സ്ഥാപനങ്ങളുടെയും അഖണ്ഡത ഉയർത്തിക്കാട്ടേണ്ടതിന്റെ പ്രാധാനൃം ജനങ്ങൾ ഈ ദിവസം ഓർമ്മിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആഭ്യന്തരമന്ത്രി അമിത് ഷായും അടിയന്തരാവസ്ഥക്കാലത്തെ നേതാക്കൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു

നിതി ആയോഗ് ഉപാധ്യക്ഷൻ രാജീവ് കുമാറാണ് റിപ്പോർട്ട് പുറത്തിറക്കുന്നത് നിതി ആയോഗ് അംഗം വി

പോൾ സി ഇ ഒ അമിതാഭ് കാന്ത് ആരോഗ്യ സെക്രട്ടറി പ്രീതി സുദൻ ലോകബാങ്ക് പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കുന്നു ആരോഗ്യ മേഖലയുടെ സമഗ്ര പ്ര പ്പിക്സനവും നയപരമായ ഇടപെടലുകളുടെ പ്രതിഫലനങ്ങളും ചൂർച്ച ചെയ്യുന്നതാണ് റിപ്പോർട്ട്

ഈ സാഹചര്യത്തിൽ ജപ്തി നടപടികൾ അനിവാര്യമായിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ബാങ്കേഴ്സ് സമിതി പത്രമാധ്യമങ്ങളിൽ പരസ്യം നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ യോഗം വീണ്ടും വിളിച്ചത്

പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ആരെയും നിന്ന് ഒഴിവാക്കിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി

പുതിയ പരാതി പരിഹാര സംവിധാനം ആർ ബി ഐ ഗവർണർ ശക്തി കാന്ത ദാസ് പുറത്തിറക്കി പരാതികൾക്ക് സമയബന്ധിത പരിഹാരം എന്നതാണ് ലക്ഷ്യമെന്ന് ശ്രീ ശക്തികാന്ത ദാസ് പറഞ്ഞു സുതാര്യത ഉറപ്പാക്കുന്നതോടൊപ്പം ഓംബുഡ്സ്മാന്റെ തീരുമാനത്തിനെതിരെ അപ്പീൽ ഓൺലൈനായി സമർപ്പിക്കാനും അവസരമുണ്ട്

മത്സരത്തിന്റെ തൽസമയ വിവരണം ആകാശവാണി പ്രക്ഷേപണം ചെയ്യും

വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ഉറുഗ്വെ ചിലെയെ കീഴടക്കി റിപ്പോർട്ട്

സെയിനിയുടെ നിര്യാണത്തിൽ രാഷ്ട്രപ്പതി രാംനാഥ് കോവിന്ദ് അനുശോചിച്ചു

എ രാജസ്ഥാൻ ബിജെപി അദ്ധ്യക്ഷൻ എന്നീ നിലക്കളിൽ മികച്ച സേവനമാണ് സെയ്നി നടത്തിയതെന്ന് ഉപരാഷ്ട്രപ്പതി വെങ്കയ്യനായിഡു പറഞ്ഞു മികച്ച പ്രവർത്തകനെയാണ് ബിജെപിയ്ക്ക് നഷ്ടമായതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി സൂപ്പർണ്ണ ഹോൾഡ് വോയിസ് സംഘർഷത്തിന് ശമനം ഉണ്ടാക്കാൻ ഇറാനും അമേരിക്കയും നേരിട്ട് ചർച്ചു നടത്തണമെന്ന് പ്രസ്താവനയിൽ യു എൻ രക്ഷാസമിതി ആവശ്യപ്പെട്ടു

ഗൾഫ് മേഖലയിൽ എണ്ണ ടാങ്കറുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളെ രക്ഷാസമിതി അപലപിച്ചു ആക്രമണം ലോക സമാധാനത്തിനും മേഖലയിലെ വാണിജ്യ വ്യാപാര താൽപര്യങ്ങൾക്കും ഭീഷണിയാണെന്ന് രക്ഷാസമിതി ചൂണ്ടിക്കാട്ടി ഇറാനെ മാത്രം പരാമർശിക്കാതെ മേഖലയിലെ എല്ലാ രാഷ്ട്രങ്ങളും ലോക രാഷ്ട്രങ്ങളും സമാധാനത്തിനായി മുന്നോട്ട് വരണമെന്ന് രക്ഷാസമിതി ആവശ്യപ്പെട്ടു അതേസമയം ഇറാനെതിരെ യു എസ് പ്രസിഡന്റ് പുതിയ ഉപരോധം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ചർച്ചയ്ക്കുള്ള സാധ്യത നിലവിലില്ലെണ്ണ് യു എസിലെ ഇറാൻ സ്ഥാനപതി മജീദ് തക്ത് റവാഞ്ചി വൃക്തമാക്കി മേഖലയിൽ സംഘർഷം കുറയ്ക്കാൻ ചർച്ചുകൾ ആരംഭിക്കാനും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും പ്രത്യേക്കം ്പുറപ്പെടുവിച്ച പ്രസ്താവനകളിൽ ആവശ്യപ്പെട്ടു

ന്യൂഡൽഹിയിൽ ബി ജെ പി നേതാക്കളായ കൈലാഷ് വിജയ് വാർഗിയ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ബി ജെ പിയിൽ ഇവർ അംഗത്വം സ്വീകരിച്ചത്